ശബരിമലയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാതെ ഗവൺമെന്റിന് വേറെ വഴിയില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേ ന്ദ്രൻ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ആരുടെയും പിന്തുണ സ്വീകരിക്കുമെന്ന് ബി

എൻ പാലൂർ അന്തരിച്ചു

സാലറി ചലഞ്ചിന്റെ പേരിൽ ഗവൺമെന്റ് ജീവനക്കാരിൽ നിന്ന് നിർബന്ധിത പിരവ് അനുവദിക്കില്ലെന്ന് നേരത്തെ ഹൈക്കോ ടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ശമ്പളം നൽകാൻ തയ്യാ റാകാത്തവരിൽ നിന്ന് വിസമ്മതപത്രം ആവശ്യപ്പെടുന്നതിൽ നിർബന്ധ ബുദ്ധി ഉണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതായും കോടതി വിലയിരുത്തി ജീവ ന ക്കാരിൽ നിന്ന് ശമ്പളവിഹിതം വാങ്ങാൻ ഗവൺമെന്റിന് അധികാരമുണ്ടെന്ന് അഡക്കറ്റ് ജനറൽ വാദിച്ചു കർഗിൽ യുദ്ധകാലത്ത് ജീവനക്കാരിൽ നിന്ന് നിർബന്ധിത വിഹിതം വാങ്ങിയ കാര്യം എ

കർഗിൽ യുദ്ധത്തെയും പ്രളയ സാഹചര്യത്തെയും താരതമ്യം ചെയ്യാനാകുമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് യുദ്ധത്തെ ക്കാൾ മോശപ്പെട്ട സാഹചര്യമാണ് പ്രളയത്തിന്റെതെന്ന് എ ജി മറു പടി നൽകി ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി അടിയന്തരമായി പരിഗണി ക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു ദേശീയ അയ്യപ്പ ഭക്ത അസോസി യേഷൻ പ്രസിഡണ്ട് ശൈലജ വിജയൻ സമർപ്പിച്ച ഹർജി അടി യന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു അപേക്ഷ നടപടിക്ര മങ്ങൾ പാലിച്ച് മറ്റ് പുനഃ പരിശോധന ഹർജികൾക്കൊപ്പം ഈ ഹർജിയും പിന്നീട് പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷ നായ ബെഞ്ച് അറിയിച്ചു പൂജ അവധിക്കു മുൻപ് കേസ് കേൾക്കണം എന്നായിരുന്നു ഹർജിക്കാരിയുടെ ആവശ്യം ശബരിമലയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാതെ ഗവൺമെന്റിന് വേറെ വഴിയില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി സ്ത്രീകൾ പ്രവേശിച്ചാൽ ശബരിമലയ്ക്ക് കളങ്കം വരില്ലെന്നും ശബരിമലയുടെ പേരിൽ അന്യായമായ കാര്യങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ജെ പി ലോങ് മാർച്ച് നടത്തേണ്ടത് പാർലമെന്റിലേക്കാണ്

പാർലമെന്റ് തെരഞ്ഞെ ടുപ്പ് മുന്നിൽക്കണ്ടാണ് കോൺഗ്രസും ബി

പി യും ശബരി മല വിഷയത്തിൽ പ്രക്ഷോഭം നടത്തുന്നത്

ജെ

ഭക്തജനങ്ങളുമായി ഗവൺമെന്റ് ഏറ്റുമുട്ടലിനില്ലെന്ന് വൃക്ത മാക്കിയ അദ്ദേഹം അവരുടെ വികാരം മനസ്സിലാക്കുന്നുണ്ടെന്നും പറഞ്ഞു ഭക്തരെന്ന മറവിൽ അമ്പലങ്ങൾക്കെതിരെ അക്രമം നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും കടകംപള്ളി പറഞ്ഞു ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കാൻ ആരു ടെയും പിന്തുണ സ്വീകരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി

ശബരിമല സംസ്ഥാന വിഷ യമായതിനാൽ കേന്ദ്രത്തിന് ഓർഡിനൻസ് ഇറക്കാൻ കഴിയി ല്ലെന്നും നിയമനിർമ്മാണം നടത്തേണ്ടത് സംസ്ഥാന ഗവൺമെന്റാ ണെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു സമരത്തിനില്ലെന്ന യു ഡി

കോൺഗ്രസ് സമരം അവ സാനിപ്പിച്ചത് സി

എം കോൺഗ്രസ് ബന്ധത്തിന്റെ തെളി വാണെന്നും ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു ശബരിമല സമരത്തിന് എസ്

പി യുടെ പിന്തുണ ഇല്ലെന്ന് എസ്

ഹിന്ദു എന്നുപറഞ്ഞ് കലാപത്തിനി റങ്ങുന്നത് ശരിയല്ലെന്നും സ്ത്രീകൾ ശബരിമലയിൽ പോകേ ണ്ടെന്നും അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറ ഞ്ഞു സമരത്തിന് വളം വെച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡണ്ട് എ പത്മകുമാറാണെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും വെള്ളാ പ്പള്ളി പറഞ്ഞു ശബരിമല വിധിയെ പ്രതിരോധിക്കേണ്ടത് കർമ്മം കൊണ്ടാണ് രാജ്യത്തെ ഭ്രാന്താലയമായി മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞു

എസ് രണ്ടാം വിമോചന സമരത്തിന് ശ്രമിക്കുക യാണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി

എസ് എസിനെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പന്തളം രാജ കുടുംബവും ശബരിമല തന്ത്രിയും മറ്റും പങ്കെടുക്കാതിരുന്നത് ശരി യായില്ലെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു സുപ്രീംകോടതി വിധി ആർക്കും അവഗണിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ ബി

പി രണ്ടാം വിമോചന സമര ത്തിന് ലക്ഷ്യമിടുകയാണെന്ന് സി

എം സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി

പാർലമെന്റിൽ നിയമം കൊണ്ടുവരാൻ ബി ജെ പി അധ്യ ക്ഷൻ അമിത് ഷാ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യം എൻ

എസ് കാത്തു സൂ ക്ഷിക്കണമെന്നും കോടിയേരി പറഞ്ഞു വിശ്വാസത്തിന്റെ രാഷ്ട്രീയമല്ല വിഭജനത്തിന്റെ രാഷ്ട്രീയ മാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കാണുന്നതെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് പി

മുഖ്യമന്ത്രിയുടെ പിടി വാശിയാണ് ശബരിമല വിഷയത്തെ സങ്കീർണ്ണമാക്കിയതെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു ദേവസം ബോർഡിനെ രാഷ്ട്രീ യമുക്തമാക്കണമെന്നും മുകുന്ദൻ ആവശ്യപ്പെട്ടു ശബരിമല പ്രക്ഷോഭങ്ങളുടെ രാഷ്ട്രീയ നേട്ടം ബി

പി യ്ക്ക് ലഭിക്കു മെന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സി

എം വിശദീകരണ യോഗം പത്തനം തിട്ടയിൽ നടന്നു വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്ത്രീ അവകാശ സംരക്ഷണ യോഗം എന്ന പേരിലാണ് വിശദീകരണം സംഘടിപ്പിച്ചി രിക്കുന്നത്

കെ ശ്രീമതി എം പി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി സതീദേവി തുടങ്ങിയർ പങ്കെടുത്തു ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെൻറ് നിയമ നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ജെല്ലിക്കെട്ട് മാതൃകയിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്ന് ആവശ്യ പ്പെട്ടാണ് മാർച്ച് ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ സുപ്രീംകോടതി വിധി അസാധുവാക്കാൻ പാർലമെന്റിൽ നിയമ നിർമ്മാണം നടത്തണമെന്ന് എസ് എൻ ഡി എസ് കോഴിക്കോട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു

തന്റെ കൈകൾ ഈ വിഷയത്തിൽ ശുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് അവൈലബിൾ സി പി ഐ എം യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ധന വില ഇന്നും വർധിച്ചു

കേന്ദ്രം നികുതി കുറച്ചതിന് ശേഷം തുടർച്ചയായി നാലാം തവണയാണ് ഇന്ധന വില വർധിക്കുന്നത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കായി മെഡൽ നേടിയ മലയാളി കായികതാരങ്ങളെ നാളെ തിരുവനന്തപുരത്ത് ആദരിക്കും സെക്ര ട്ടേറിയേറ്റ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡൽ ജേതാക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യും

ബ്യൂണസ് അയേഴ്സിൽ നടക്കുന്ന യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം

നേരത്തെ ഏഷ്യൻ ചാമ്പ്യൻഷി പ്പിൽ ജെറമി വെള്ളിയും വെങ്കലവും നേടിയിരുന്നു ഇന്ത്യ ഇന്നലെ രണ്ട് വെള്ളിമെഡൽ നേടിയിരുന്നു വനിത കളുടെ ജൂഡോയിൽ താങ്ജംതബാബി ദേവിയും ഷൂട്ടിങ്ങിൽ മേഹുലി ഘോഷുമാണ് വെള്ളി നേടിയത് ഏഴിമല നാവിക അക്കാദമിയിൽ നടന്ന ഇന്റർ കമാണ്ട് ക്രോ സ് കൺട്രി ചാമ്പ്യൻഷിപ്പിൽ ജയ്രേഷ് യാദവ് ഒന്നാം സ്ഥാനം നേടി

വികാസ് കുമാർ രണ്ടാമതെത്തി

വിജയികൾക്ക് അക്കാദമി കമാണ്ടന്റ് വൈ സ് അഡ്മിറൽ ആർ ബി പണ്ഡിറ്റ് മെഡലുകൾ സമ്മാനിച്ചു പ്രമുഖ കവി എം

വാർധകൃ സഹജ മായ അസുഖത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടായി രുന്നു അന്ത്യം

പാലൂർ മാധവൻ നമ്പൂതിരി എന്ന എം എൻ പാലൂര് എറണാ കുളം പറവൂരിലാണ് ജനിച്ചത്

പേടിത്തൊണ്ടനാണ് ആദ്യ കാവ്യ സമാഹാരം തീർത്ഥയാത്ര സംഗമ സംഗീതം ഭംഗിയും അഭംഗിയും സർഗധാര പച്ചമാങ്ങ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനകൃതികൾ

പാരമ്പര്യത്തെയും ആധുനികതയെയും യോജിപ്പിച്ച കവിയായിരുന്നു പാലൂരെന്ന് മുഖ്യമന്ത്രി തിരുവനന്ത പുരത്ത് പറഞ്ഞു ഐ എസ് ആർ ഒ ചാരക്കേസിൽ കുറ്റവിമുക്ത നാക്കിയ നമ്പി നാരായണന് സുപ്രീംകോടതി വിധിച്ച നഷ്ടപരിഹാരത്തുകയായ അൻപത് ലക്ഷം രൂപ ഉച്ചകഴിഞ്ഞ് കൈമാറും

തുക നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു അന്തർ സംസ്ഥാന പാതയായ ഇരിട്ടി വീരാജ്പേട്ട റൂട്ടിൽ വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്ര ണത്തിൽ ഇളവ് വരുത്തി ഉരുൾപ്പൊട്ടലിനെ തുടർന്ന് റോഡ് തകർന്നതിനാൽ ഈ റൂട്ടിൽ ഗതാഗതം നിരോധിച്ചിരുന്നു രാവിലെ ആറു മുതൽ വൈകീട്ട് ആറു വരെ ബസുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കടത്തി വിടാനാണ് തീരുമാനം തമിഴ്നാട്ടിലെ നക്കീരൻ പത്രത്തിന്റെ എഡിറ്റർ നക്കീരൻ ഗോപാലൻ ചെന്നൈ വിമാനത്താവളത്തിൽ അറസ്റ്റിലായി തമി ഴ്നാട് ഗവർണർ ബൻവാരി ലാൽ പുരോഹിതനെ അപകീർത്തി പ്പെടുത്തുന്ന ലേഖനം എഴുതിയെന്ന രാജ്ഭവന്റെ പരാതിയിലാണ് അറസ്റ്റ്

നാളെയും മറ്റെ ന്നാളും മട്ടന്നൂർ നഗരസഭയിലെയും കീഴല്ലൂർ പഞ്ചായത്തിലെയും ആളുകൾക്കും വെള്ളിയാഴ്ച സ്കൂൾ കുട്ടികൾക്കും മാത്രമായി രുക്കും പ്രവേശനം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വിമാനത്താവ ളം കാണാനായി വൻജനത്തിരക്കായിരുന്നു ഇതേ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതിനിടെ വിവിധ വിമാനത്താവള കമ്പനികളുമായി കിയാൽ അധികൃതരുടെ കൂടിക്കാഴ്ച ഇന്ന് നട ക്കുകയാണ് കണ്ണൂർ വിമനത്താവളത്തിൽ നിന്ന് സർവ്വീസ് നടത്തു ന്നതിന് താൽപര്യം അറിയിച്ച കമ്പനികളുമായും പുതുതായി സർ വ്വീസ് നടത്താൻ ആഗ്രഹഹിക്കുന്ന വിമാനക്കമ്പനികളുമായും കി യാൽ മാനേജിംഗ് ഡയരക്ടർ വി

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആവിഷ്ക്കരിച്ച് നടപ്പാ ക്കുന്ന വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അടിസ്ഥാനതലത്തിൽ അവബോധം വ്യാപകമാക്കണമെന്ന് കെ

മൂടാടി ഗ്രാമപഞ്ചായത്തിൽ കണ്ണൂർ ഔട്ട് റീച്ച് ബ്യൂറോ സംഘ ടിപ്പിച്ച പ്രത്യേക ജനസമ്പർക്കപരിപാടി ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം